ചന്ദ്രയാൻ ദൌത്യത്തിന്റെ ലക്ഷ്യപ്രാപ്തിയ്ക്ക് രാജ്യം ഒറ്റക്കെട്ടായി മുന്നേറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ജമ്മു കാശ്മീരിൽ നിയന്ത്രണ്ട് രേഖയിൽ പാക് നുഴഞ്ഞുകയറ്റ ശ്രമം സ്നേന വീഫലമാക്കി

പാലാരിവട്ടം പാലം നിർമ്മാണ അഴിമതിക്കേസിൽ അറസ്റ്റിലായ മുൻ പ്പൊതുമരാമത്ത് സെക്രട്ടറി ടി

സൂരജ് ഉൾപ്പെടെയുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി

പാലാ ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു

ഈ അവസരത്തിൽ രാഷ്ട്രം ഒന്നടങ്കം ഒപ്പമുണ്ടെന്നും നാം കൂടുതൽ കരുത്താർജ്ജി ക്കുകയാണ് വേണ്ടതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ബംഗളൂരുവിലെ ഐ എസ് ആർ ഒ കേന്ദ്രത്തിൽ രാവിലെ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

രാജ്യത്തിന് വേണ്ടി ആത്മസമർപ്പണം നടത്തുന്ന നമ്മുടെ ശാസ്ത്രജ്ഞരിൽ നാം അങ്ങേയറ്റം അഭിമാനിക്കുന്നെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു

എന്നാൽ അത് നമ്മുടെ മുന്നോട്ടുള്ളകുതിപ്പിന് ഒരിക്കലും വിഘാതമായിട്ടില്ലെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി

എസ് ആർ

ചന്ദ്രോപരിതലത്തെക്കുറിച്ചും ചന്ദ്രന്റെ അന്തരീക്ഷത്തെ കുറിച്ചും പഠിക്കുകയാണ് ഓർബിറ്ററിന്റെ ദൌത്യം വിക്രം ലാൻഡറുമായി മാത്രമാണ് ഐ എസ്

എസ് ആർ ഒ

എസ് ആർ ഒ

എസ്

യിലെ കഠിനാധാനികളായ ശാസ്ത്രജ്ഞരോടൊപ്പമാണ് ഇന്ത്യയെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു നിരവധി നൂതനവും ആശാവഹവുമായ ബഹിരാകാശ പദ്ധതികൾക്ക് ഐ

ഒ അടിസ്ഥാനമിട്ടിട്ടുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പ്പുറഞ്ഞു

ഇപ്പോഴുണ്ടായ തടസ്സങ്ങൾ അവർക്ക് തരണം ചെയ്യാൻ കഴിയും

ജമ്മുകാശ്മീരിൽ നിയന്ത്രണ രേഖ ലംഘിക്കുന്നതിന് സ്വന്തം പൌരന്മാരെ പാകിസ്ഥാൻ മനപൂർവ്വം പ്രേരിപ്പിക്കുകയാണെന്ന് ഇന്ത്യൻ സേനാവൃത്തങ്ങൾ കുറ്റപ്പെടുത്തി

സൂരജ് ഉൾപ്പെടെയുള്ള നാലു പ്രതികൾ സമർപ്പിച്ച ജാമ്യാപേക്ഷ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി തള്ളി അന്വേഷണം നേരിടുന്ന ഘട്ടത്തിൽ ജാമ്യം നൽകാനാവില്ലെന്ന് വൃക്തമാക്കിയ കോടതി ജാമൃത്തിലിറങ്ങിയാൽ പ്രതികൾ കേസിനെ സ്വാധീനിക്കുമെന്നു പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിക്കുകയായിരുന്നു

പൊതുമരാമത്ത് വിജിലൻസ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ കേരളാ സ്റ്റേറ്റ് കൺസ്ട്രഷൻ കോർപ്പറേഷനിൽ നടത്തിയ മിന്നൽ പരിശോധനയെ തുടർന്നാണ് നടപടിയെന്ന് മന്ത്രി ജി

മുത്തലാഖ് മുത്തലാഖ് നിയമം പ്രാബലൃത്തിൽ വന്നതിന് ശേഷം സംസ്ഥാനത്തെ രണ്ടാമത്തെ കേസ് പരപ്പനങ്ങാടി മജിസ്ട്രേട്ട് കോടതിയിൽ ഫയൽ ചെയ്തു കടലുണ്ടി ആനങ്ങാടി പീടിയേക്കൽ സ്വദേശിനിയാണ് ഭർത്താവിനെതിരെ മുത്തലാഖ് ചൊല്ലിയെന്ന പരാതി നൽകിയത്

ഡി എഫ് സ്ഥാനാർത്ഥി ജോസ് ടോം എൽ ഡി എഫ് സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ എൻ ഡി എ സ്ഥാനാർത്ഥി എൻ ഹരി എന്നിവർ വീടുകളും സ്ഥാപനങ്ങളും സന്ദർശിച്ച് പ്രചാരണം നടത്തുന്നു നാമനിർദ്ദേശപത്രിക പിൻവലിക്കാനുളള സമയപരിധി ഇന്ന് അവസാനിച്ചു പാലാ മുരളീധരൻ പാലാ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ നേതാക്കൾ പരസ്യ പ്രതികരണവും അഭിപ്രായ വ്യത്യാസവും മാറ്റി വെക്കണമെന്ന് കെ മുരളീധരൻ എം പി കോഴിക്കോട്ട് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു

തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിലവിലുളള പ്രശ്നങ്ങൾ യു ഡി എഫ് പരിഹരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ശബരിമല ശബരിമല ദർനത്തിനായി യുവതികൾ എത്തിയാൽ അവർക്കുവേണ്ട എല്ലാ സഹായങ്ങളും ഗവൺമെന്റ് നൽകുമെന്ന് മന്ത്രി എം

ഇതിന്റെ പേരിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവരെ ഒറ്റപ്പെടുത്തണം അതിന് എല്ലാരും സഹകരിക്കണമെന്നും മന്ത്രി തൊടുപുഴയിൽ പറഞ്ഞു സ്ത്രീകൾ ശബരിമലയിൽ പ്രവേശിക്കാൻ എത്തിയാൽ അവർക്ക് സംരക്ഷണം ക്കൊടുക്കാൻ ഗവൺമെന്റിന് ഉത്തരവാദിത്തമുണ്ടെന്നും അത് ദ് നീർവ്വഹിക്കുക മാത്രമാണ് ഇതുവരെയും ചെയ്തതും ഇന്റ്റി പ്പെയ്യാൻ പോകുന്നതെന്നും ശ്രീ മണി വ്യക്തമാക്കി തോമസ് ഐസക് ഓണക്കാലത്തെ ബില്ലുകൾ മാറുന്നത് ഉൾപ്പെടെയുള്ള സാമ്പത്തിക ഇടപാടുകൾക്കായി അവധി ദിവസമായ നാളെയും സംസ്ഥാനത്തെ ട്രഷറികൾ പ്രവർത്തിക്കും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

ഹരിതചട്ടം പൊതുപരിപാടികളിൽ ഹരിതചട്ടം പാലിക്കണമെന്ന് തദ്ദേശസ്ഥാപന ങ്ങൾക്ക് ഗവൺമെന്റ് കർശന നിർദ്ദേശം നൽകി ഇതിനായി തനതുഫണ്ട് വിനിയോഗിക്കാൻ തദ്ദേശസ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകി ഗവൺമെന്റ് ഉത്തരവായി

എസ് ഓപ്പൺ ഫൈനലിലെ ത്തുന്ന ആദ്യ കനേഡിയൻ താരമാണ് ബിയൻക പുരുഷ സിംഗിൾസ് ഫൈനലിൽ നാളെ രണ്ടാം സീഡ് റഫേൽ നദാൽ അഞ്ചാം സീഡ് ഡാനിൽ മെദ്ദേവുമായി ഏറ്റുമുട്ടും

മഴ സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ ഒന്നു രണ്ടു സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുളളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു കേരളത്തിലും ലക്ഷദ്വീപിലും അടുത്ത അഞ്ചു ദിവസം ഇടിയോടുകൂടിയ മഴപെയ്തേക്കാം

ഡാം കനത്ത മഴയിൽ ജലനിരപ്പ് ക്രമാത്യീരുമായി ഉയർന്നതിനെ തുടർന്ന് തൃശൂർ ചിമ്മിനി ഡാമിന്റെ രണ്ട് ്ഷ്ട്ടറുകൾ ഇന്ന് അഞ്ച് സെന്റിമീറ്റർ വീതം ഉയർത്തി കുറുമാലി ക്കരുവന്നൂർ പുഴകളുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത്ത്പാലിക്കണം

ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ ചാലക്കുടിപുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു കൊല്ലം തെന്മല പരപ്പാർ അണക്കെട്ടിലെ ഷട്ടറുകൾ ഇന്ന് രണ്ടടിയോളം ഉയർത്തും കല്പടയാറിന്റെ ഓരങ്ങളിൽ വസിക്കുന്നവർ ജാഗ്രത നിർദ്ദേശം കർശനമായി പാലിക്കണമെന്ന് കളക്ടർ നിർദ്ദേശിച്ചു തിരുവനന്തപുരം പേപ്പാറ ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ അഞ്ച് സെന്റീമീറ്റർ കൂടി ഉയർത്തി

കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരി സന്ദേശം നൽകി